സൌന്ദര്യവൽക്കരണ പ്രപ്പുവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനും ചെയ്തു കാൺപൂരിലേയും ഗാസിയാബാദില്ലേയും വികസന പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

സാമ്പത്തിക സഹായം നൽകരുതെന്നും പാകിസ്ഥാനോട് അമേരിക്ക

ലോകം ഇന്ന് അന്താരാഷ്ട്ര വനിതാദിനം ആചരിക്കുന്നു നാരീശാക്തീ പുരസ്കാരം രാഷ്ട്രപതി ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും

മാവോയിസ്റ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ കേരളത്തിലെ വനമേഖലകളിൽ പൊലീസ് സുരക്ഷ ശക്തമാക്കി

മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ഖലീഫുള്ള അധ്യക്ഷനായ മൂന്നംഗ സമിതിയിൽ ആത്മീയ നേതാവ് ശ്രീശ്രീ രവിശങ്കർ മുതിർന്ന അഭിഭാഷകൻ എന്നിവരും അംഗങ്ങളാണ്

നാലാഴ്ചയ്ക്കുള്ളിൽ മധ്യസ്ഥ സംഘം ആദ്യ റിപ്പോർട്ട് കോടതിയിൽ നൽകണം ചർച്ചകൾ പൂർത്തിയാക്കാൻ എട്ടാഴ്ച്ച സമയം മധ്യസ്ഥ സമിതിക്ക് അനുവദിച്ചു അതുവരെ മധ്യസ്ഥ ചർച്ചകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് വിലക്കുണ്ടായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കി നിർമോഹി അഖാഡ രാംലല്ല സുന്നി വഖഫ് ബോർഡ് എന്നിവരാണ് അയോധ്യയിലെ തർക്കഭൂമിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്

ക്ഷേത്രത്തിൽ നിർമ്മിക്കാൻ ഉൾദ്ദശിക്കുന്ന ഇടനാഴിയുടെ ശിലാസ്ഥാപനവും മോട്ടിപ്പിടിപ്പിക്കൽ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവ്വഹിച്ച് സ്ംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ എല്ലാ ക്ഷേത്ര്ങ്ങൾക്കും ഈ ഇടനാഴി ഒരു മാതൃകയാകുമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു ഉത്തർപ്രദേശിലെ കാൺപൂർ ഗാസിയാബാദ് എന്നിവിടങ്ങളിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും വനിത തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ അദ്ദേഹം പങ്കെടുക്കും

ഗാസിയാബാദിൽ ഹിൻഡൻ വിമാനത്താവളത്തിന്റെ സിവിൽ ടെർമിനലിന്റെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവ്വഹിക്കും

പുൽവാമ ഭീകരാക്രമണത്തിന്റെ ് പശ്ചാത്തലത്തിലാണ് അമേരിക്ക നിലപാട് കടുപ്പിച്ചത്

എം

എ

രാജ്യത്തെ നഗരങ്ങൾ ഗ്രാമങ്ങൾ വൃവസായ സംരംഭങ്ങൾ വാർത്താവിനിമയ ബന്ധങ്ങൾ കൃഷി നിലങ്ങൾ അടിസ്ഥാനസൌകര്യം തുടങ്ങിയവയ്ക്ക് വെള്ളപ്പൊക്കത്തിൽ നിന്നും മണ്ണൊലിപ്പിൽ നിന്നും രക്ഷ നൽകുന്നതാണ് ഈ നിർദ്ദേശംം

ഇരു രാജ്യങ്ങൾക്കും ഗുണകരമികുന്ന് തരത്തിൽ നേപ്പാളിലെ സപ്തകോസി സൺകോസി പ്പിദ്ധതി പാഞ്ചേശ്വർ വിവിധോദ്ദേശ പദ്ധതി എന്നിവപോലെ അയൽ രാജ്യങ്ങളുമായി പൊതുവായുള്ള നദികളിലെ ജലവിഭവ പദ്ധതികൾ പര്യവേഷണം വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കൽ എന്നിവയും പരിപാടിയിൽ ഉൾപ്പെടുന്നു

വെങ്കയു നായിഡു എടുത്തു പറഞ്ഞു

പരസ്പര സഹകരണത്തിന് സാധ്യതയുള്ള മേഖലകൾ കൂടുതൽ പഠനവിധേയമാക്കണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

ഗവൺമെന്റ് ഗ്വൺട്മന്റ് ഇതര സംഘടനകളും ദിനാചരണവുമായി ബന്ധ്പ്പെട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ക്രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദ്ദി കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി എന്നിവർ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ നേർന്നു സ്ത്രീകൾ വിവിധ തുറകളിൽ കൈവരിച്ച നേട്ടങ്ങളിൽ രാജ്യത്തെ പൌരൻമാരും അഭിമാനിക്കുന്നതായും ഓരോ സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കുന്ന നിരവധി നടപടികൾ സ്വീകരിക്കാൻ തന്റെ ഭരണകൂടത്തിന് സാധിച്ചതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു

സാമൂഹികക്ഷേമത്തിനും സ്ത്രീശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിച്ച വനിതകൾക്കും സ്ഥാപനങ്ങൾക്കും വനിത ശിശുക്ഷേമ മന്ത്രാലയം നൽകുന്ന പുരസ്കാരമാണ് നാരിശക്തി പൂരസ്കാരം

രാത്രി ഏഴിന് മുംബൈ ദേശീയ മ്യൂസിയത്തിലാണ് പ്രദർശനം

കാൻസർ പ്രതിരോധം പരിചരണം ചികിത്സാ ചെലവ് എന്നീ വിഷയങ്ങളിലെ ഗവേഷണ വെല്ലുവിളികൾ കണ്ടെത്തുകയാണ് ഇന്ത്യ യു

കാൻസർ ചികിത്സാ ഗവേഷണവുമായി ബുസ്പ്പെട്ട് ഏറ്റവും മികച്ചു ഗവേഷകർ ശാസ്ത്രജ്ഞർ ആരോഗ്യപരിചരണ സ്ഥാപനങ്ങൾ എന്നിവയടങ്ങുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ഗവേഷണ രീതി ഒരുക്കുകയാണ് ചെലവു കുറഞ്ഞതും ഗുണനിലവാരം ഉയർന്നതുമായി ഈ സംരംഭത്തിന്റെ ലക്ഷ്യം

നിലമ്പൂർ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ സുരക്ഷ ശക്തമാക്കിയത് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദ്ദേശങ്ങളിലെ വഴിക്കടവ് കരുവാരക്കുണ്ട് നിലമ്പൂർ എടക്കരു പ്പോത്തുകല്ല് കാളികാവ് പൂക്കോട്ടുംപാടം സ്റ്റേഷനുകളിൽട്ട് ് പൊലീസിന് ജാഗ്രതാ നിർദേശം നൽകി വയനാടിന് പുറമെ മാപ്പോ്യിിസ്റ്റ് സാന്നിദ്ധ്യമുള്ള കണ്ണൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിലും പൊലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്

തിരുവനന്തപുരത്തെ നേമത്ത് നിർമ്മിക്കുന്ന പുതിയ റെയിൽവേ ടെർമിനലിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിച്ച് കോച്ച് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ നിന്ന് വീഡിയോ കോൺഫറെൻസിംഗിലൂടെയാണ് പദ്ധതിയ്ക്ക് കേന്ദ്രമന്ത്രി തുടക്കം കുറിച്ചത്

അതുകൊണ്ടുതന്നെ ഇന്നത്തെ മത്സരം ജയിച്ച് പ്രപ്രമ്പര സ്വന്തമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ് ഇന്നിറങ്ങുന്നത് ഇന്ത്യയ്ക്കായി മഹേന്ദ്രസിംഗ് ധോണി ് സ്വന്തം മണ്ണിൽ കളിക്കുന്ന അവസാന മത്സരമാകും ഇന്നത്തേത്